ആത്മവിശ്വാസവും സ്വാശ്രയത്വവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ആദ്യദിനം വിജയക്കരം

തിരിതെളിഞ്ഞു

ചൈനയിൽ കോറോണ് ക്ട്രിക്കുവറസ് സാന്നിധ്യം കണ്ടെത്തിയ ഉടൻ വിമാനത്താവ്യള്ളങ്ങ്ളിൽ യാത്രക്കാരെ സ്ക്രീനിംഗിന് വിധേയമാക്കാൻ തുടങ്ങിയ ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പിച്ചു

അതിൽ ്ന്മ്മൾ വിജയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു

മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുളള ആരോഗ്യപ്രവർത്തകർക്കും കോവിഡ് മുൻനിര പോരാളികൾക്കുമാണ് ഇന്ന് കുത്തിവയ്പ് നൽകിയത്

ഏതെങ്കിലും തരത്തിലുളള അസ്വസ്ഥതകൾ ഉണ്ടായാൽ പരിഹരിക്കുന്നതിന് അടിയന്തിര ചികിത്സാ സംവിധാനങ്ങൾ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്

കോവിഡിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം ജനപങ്കാളിത്തതോടെ വിജയം കൈവരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

രജിസ്റ്റർ ചെയ്തവരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ചശേഷമാണ് വാക്സിൻ ന്ൽകിയത് ഓരോ വൃക്തിക്കും അര മില്ലിലിറ്റർ കോവീഷീൽഡ് വാക്സിനാണ് കുത്തിവയ്പ്പിലൂടെ നൽകുന്നത്

ലക്ഷദ്വീപിലും ഇന്ന് മുതൽ വാക്സിൻ കൂത്തിവയ്പ് ആരംഭിച്ചു

കോവിഡിനെതിരായുള്ള പോരാട്ടത്തിലെ നിർണ്ണായകഘട്ടമാണ് രാജൃം പിന്നിട്ടതെന്നും ഉഅദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ രാജൃരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിനെ സന്ദർശിച്ചാണ് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചത് ആറാമത് ഇന്ത്യ നേപ്പാൾ ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയതാണ് അദ്ദേഹം

സ്റ്റാർട്ട് ഇന്ത്യ അന്താരാഷ്ട്ര ഉച്ചകോടി പ്രാരംഭിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രൊനമന്ത്രി ഇന്ത്യയെ സ്റ്റാർട്ടപ്പുകളുടെ മുൻനിര കേന്ദ്രമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വാണിജ്യവ്യവസായ മന്ത്രാലയത്തിനു കീഴിലുള്ള വൃവസായ പ്രോത്സാഹന വകുപ്പാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്

ശാമപ്രസാദ് മുഖർജി സ്റ്റ്ഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മേള ഉദ്ഘാടനം ചെയ്തു

കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളെ മറികടന്ന് ചലച്ചിത്രമേള സാധ്യമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരേയും അഭിനന്ദിക്കുന്നതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ് പറഞ്ഞു ഹൈബ്രിഡ് രീതിയിൽ നടക്കുന്ന മേള ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കംകുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പ്രസിദ്ധ ഇറ്റാലിയൻ ഛായാഗ്രാഹകനായ വിറ്റ്റിയോ സ്റ്റോറാറിയോ യെ ആജീവനാന്ത സംഭാവനകൾക്കുള്ള പുരസ്കാരം നൽകി മേളയിൽ ആദരിച്ചു ഗോവ മുഖ്യമന്ത്രി ഡോ

ഇത് ആദ്യമായാണ് ഓൺലൈൻ സാധ്യകൾ പ്രയോജനപ്പെടുത്തി അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നേരിട്ടും ഓൺലൈനായും പ്രതിനിധികൾക്ക് മേളയിൽ പങ്കെടുക്കുന്നതിനുള്ള സൌകരൃം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം ഗുജറാത്തിലെ റെയിൽവേ മേഖലയിലെ മറ്റ് വിവിധ പദ്ധതികളും ഈ അവസരത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ മുഖ്യമന്ത്രി വിജയ് രൂപാണി തുടങ്ങിയവരും സന്നിഹിതരായിരിക്കും

ന്യൂഡൽഹിയിൽ മന്ത്രാലയം സെക്രട്ടറി തരുൺ കപൂർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു

വർഷം പ്രശ്നങ്ങളുടേത്മായിരുന്നെങ്കിൽ പുതുവർഷം പരിഹാരങ്ങളുടേതാണെന്ന് അദ്ദേഹ്ം പറഞ്ഞു

ആദിത്യനാഥ് കരസേന്റാ് മേധാവി എം എം നരവണെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു

സ്റ്റീൽ വ്യവസായത്തിന് ആവശ്യമുള്ള ചരക്ക് ഗതാഗതം സേവനം പൂർണ്ണമായി ഇതിലൂടെ ലഭിക്കും